പി ജയരാജൻ

വിലവർദ്ധന അനുവദിക്കാനാവില്ലെന്ന് മന്ത്രി ഡോ

ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നും ജാഗ്രത വേണമെന്നും മന്ത്രി പറഞ്ഞു

മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി എം എൽ എ മാർ തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർ ജില്ലാ പൊലീസ് മേധാവി കണ്ണൂർ റെയിൽവെ സ്റ്റേഷൻ മാനേജർ വിവിധ വകുപ്പ് മേധാവികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ദേദ കൊറോണ രോഗബാധിതരായി കോട്ടയം മെഡിക്കൽ കോളജ് ആശുപത്രിയിൽ ചികിൽസയിൽ കഴിയുന്ന വയോധികരായ ദമ്പതികളുടെ ആരോഗ്യ നില വളരെ മെച്ചപ്പെട്ടതായി ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു മറ്റ് അസുഖങ്ങൾ കൂടി ഉള്ളതിനാൽ ഇരുവരും തീവ്ര പരിചരണ വിഭാഗത്തിൽ തുടരുകയാണ് ഇരുവരിൽ നിന്നും സ്രവം എടുത്ത് പരിശോധനക്കയച്ചിട്ടുണ്ട് ഫലം നെഗറ്റീവായാൽ ഒന്നുകൂടി പരിശോധിച്ചശേഷം വീട്ടിലേക്കയക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു ദേദ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ സൌദി അറേബ്യ നാളെ മുതൽ രണ്ടാഴ്ചത്തേക്ക് മുഴുവൻ അന്താരാഷ്ട്ര സർവീസുകളും നിർത്തിവെയ്ക്കും

റോം സർവീസുകൾ നിർത്തിവെക്കില്ലെന്ന് ജനറൽ ഏവിയേഷൻ അതോറിറ്റി ന്യൂഡൽഹിയിൽ അറിയിച്ചു ദേദ കൊറോണ വൈറസ് വ്യാപന സാഹചര്യത്തിൽ കോഴിക്കോട് ജില്ലയിൽ എല്ലാ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളും അടച്ചു

മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി വിതരണോദ്ഘാടനം നിർവഹിച്ചു

ദരദ കൊറോണ വൈറസ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ പ്രവർത്തനം പരിമിതപ്പെടുത്താൻ സുപ്രീംകോടതി തീരുമാനിച്ചു

ബന്ധപ്പെട്ട അഭിഭാഷകരെയല്ലാതെ മറ്റാരെയും കോടതി മുറിയിൽ പ്രവേശിപ്പിക്കില്ലെന്ന് സുപ്രീംകോടതി സർക്കുലറിൽ അറിയിച്ചു

ഇവരെ നിരീക്ഷിക്കാൻ ആലുവ ആശുപത്രിയിലേക്ക് മാറ്റി

അതിനിടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സന്ദർശകർക്ക് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി കോവിഡ് സ്ഥിതിഗതി വിലയിരുത്താൻ കൊച്ചിയിൽ മന്ത്രി വി എസ് സുനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ അടിയന്തരയോഗം ചേരും ദേശ ഇറ്റലിയിലെ മിലാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ കൊണ്ടുവരുന്നതിന് എയർഇന്ത്യയുടെ പ്രത്യേക വിമാനം ഉച്ചകഴിഞ്ഞ് യാത്ര തിരിയ്ക്കും നാളെ ഇവരുമായി വിമാനം തിരിച്ചെത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിലെ അഡീഷണൽ സെക്രട്ടറി ദമ്മുരവി ന്യൂഡൽഹിയിൽ അറിയിച്ചു

ഇവരെ തിരിച്ചു കൊണ്ടുവരുന്നതിനാണ് ഗവൺമെന്റ് മുൻഗണന നൽകുന്നത് ദരദ പെട്രോൾ ഡീസൽ എക്സൈസ് തീരുവ കേന്ദ്ര ഗവൺമെന്റ് വർദ്ധിപ്പിച്ചു ലിറ്ററിന് മൂന്ന് രൂപയാണ് കൂടിയത് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞതിനെത്തുടർന്ന് എണ്ണക്കമ്പനികൾ ഈയിടെ വില കുറച്ചിരുന്നു ഈ സാഹചര്യത്തിൽ വില വർദ്ധന നാമമാത്രമായിരിക്കും ദേദ പെട്രോൾഡീസൽ എക്സൈസ് നികുതി വർദ്ധന അനുവദിക്കാനാവില്ലെന്ന് മന്ത്രി ഡോ

സംസ്ഥാനം ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു

ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു

വിലവർദ്ധന കേന്ദ്രഗവൺമെന്റ് അടിയന്തരമായി പിൻവലിക്കണ മെന്നും കോടിയേരി ആവശ്യപ്പെട്ടു

ചീഫ് എക്സിക്യുട്ടീവ് ഓഫീസറും മാനേജിംഗ് ഡയറക്ടറുമായ പ്രശാന്ത് കുമാറിന്റെ നേതൃത്വത്തിൽ പുതിയ ബോർഡ് ഈ മാസം അവസാനം ചുമതലയേൽക്കും

ദേദ ഐ എസ് എൽ ഫുട്ബോൾ ഫൈനലിൽ ഇന്ന് ചെന്നൈയ്ൻ എഫ് സി എ

കൊറോണ ഭീതി മൂലം അടച്ചിട്ട സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക

രാവിലെ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പ്രത്യേക സുരക്ഷ കവചം അണിഞ്ഞാണ് ഉദ്യോഗസ്ഥ സംഘങ്ങൾ വളർത്തു പക്ഷികളെ പിടികൂടി കൊല്ലുന്നത് രോഗം കണ്ടത്തിയ പ്രദേശത്തിന്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ വീടുകളിലെത്തി പക്ഷികളെ കൊല്ലുകയാണ് കോഴി താറാവ് പ്രാവുകൾ അലങ്കാര പക്ഷികൾ എന്നിവയെയാണ് കൊല്ലുന്നത് രുര പക്ഷിപ്പനിയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പൌൾട്രി ഫാമിൽനിന്നും വിതരണം ചെയ്ത കോഴികളെ സംബന്ധിച്ച് തെറ്റിദ്ധാരണ പരത്തുന്ന വാർത്തയാണ് വന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി പറഞ്ഞു പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്യുന്നതിനു മാസങ്ങൾക്ക് മുമ്പാണ് കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തത് ആരോഗ്യമുള്ള കോഴികളാണ് പൌൾട്രി ഫാമിലുള്ളതെന്ന് അദ്ദേഹം കോഴിക്കോട്ട് അറിയിച്ചു ദേദ മാസ്ക്കിന് ദൌർലഭ്യവും അമിത വില ഈടാക്കുന്നതും സംബന്ധിച്ച പരാതിയെ തുടർന്ന് വടകരയിലെ ഹോൾസെയിൽ സർജിക്കൽ വിൽപന ശാലകളിലും മെഡിക്കൽഷോപ്പുകളിലും അധികൃതർ പരിശോധന നടത്തി

അമിതവില ഈടാക്കിയ മെഡിക്കൽ ഷോപ്പുകൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി ദേദ സംസ്ഥാനത്തെ മദ്യശാലകളും മദ്യവിൽപ്പന കേന്ദ്രങ്ങളും അടച്ചുപൂട്ടാൻ ഗവൺമെന്റ് തയ്യാറാകണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി

നിയമസഭാ സമ്മേളനം ഉപേക്ഷിക്കുന്ന തരത്തിൽ കടുത്ത നടപടി സ്വീകരിച്ച മുഖ്യമന്ത്രി വളരെയധികം ആളുകൾ കൂടുന്ന മദ്യമേഖലയെ പ്രവർത്തിക്കാനനുവദിച്ചത് അനീതിയാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു ദുദ തദ്ദേശ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പിന് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷിച്ച അർഹതയുള്ളവരെ നേരിട്ട് ഹാജരാകുന്നതിൽനിന്ന് ഒഴിവാക്കി പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ വി

ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുകയും ഫോട്ടോ അപ് ലോഡ് ചെയ്യുകയോ ഫോട്ടോ ല്യമാക്കുകയോ ചെയ്തിട്ടുള്ളവരുടെ കാര്യത്തിൽ തടസ്സവാദമൊന്നും ഇല്ലെങ്കിൽ പേര് ഉൾപ്പെടുത്തുമെന്നും എന്തെങ്കിലും കാരണത്താൽ ഇപ്പോൾ പേര് ചേർക്കാൻ കഴിയാത്തവർക്ക് തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുമ്പ് വീണ്ടും അവസരം നൽകുമെന്നും കമ്മീഷണർ തിരുവനന്തപുരത്ത് അറിയിച്ചു

നടപ്പ് വാർഷിക പദ്ധതിയിൽ കരാറുകാരുടെ നിസ്സഹകരണം കാരണം പല ജോലികളും ടെൻഡർ എടുക്കാതെ പോയതും ടെൻഡർ എടുത്തവയിൽ പലതും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കരാറുകാർ തയ്യാറാവാത്തതും വാർഷിക പദ്ധതിയെ പ്രതികൂലമായി ബാധിച്ചതായി അദ്ദേഹം അറിയിച്ചു ദേദ കണ്ണൂർ ഇരിട്ടിക്കടുത്ത് കാക്കയങ്ങാട് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് പ്രവർത്തിപ്പിച്ച സംഭവത്തിൽ കസ്റ്റഡിയിലെടുത്ത ആളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കാക്കയങ്ങാട് സ്വദേശി അബ്ദുൾ ഗഫൂറാണ് അറസ്റ്റിലായത്